നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

പ്രതികരണം ഇന്നലെ മാത്രം കൂല്ക്ഷം ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തു

നിയന്ത്രണങ്ങൾ

തുടരുന്നു

എല്ലിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും

റുവാണ്ടൻ പ്രസിഡന്റ് പോൾ കാഗ്മേ ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫ്രഡറിക്സൺ എന്നൂിവർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളാവും ഭൌമ രാഷ്ട്രീയം ചൂർച്ചു ചെയ്യുന്നതി നായി ഇന്ത്യ സംഘടിപ്പിക്കുന്ന സുപ്പശ്ശേന്റ് ആഗോള സമ്മേളനമായ റെയ്സിന സംഭാഷണം ഇക്കുറി ക്ഷൂർണ്ണമായും വിർച്ചൽ രീതിയി ലാണ് നടക്കുന്നത്

ബഹുസ്വരത ഐക്യരാഷ്ട്ര സഭയുടെ പുനർനിർമിതി വിതരണ ശൃംഖലകളുടെ വൈവിധ്യവത്കരണം തുടങ്ങി അഞ്ച് വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാകും ഇക്കുറി ചർച്ചകൾ സ്വീഡൻ മുൻ പ്രധാനമന്ത്രി കാൾ ബിൽറ്റ് ഓസ്ട്രേലിയൻ മുൻ പ്രധാനമന്ത്രി ആന്റണി അബോട്ട് ന്യൂസിലന്റ് മുൻ പ്രധാനമന്ത്രി ഹെലൻ ക്ലർക്ക് എന്നിവർ സംഭാഷണത്തിൽ പങ്കെ ടുക്കും പോർട്ടുഗൽ ജപ്പാൻ ഓസ്ട്രേലിയ സിംഗപ്പൂർ ഇറാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും പങ്കെടുക്കു ന്നുണ്ട്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ എന്നിവരുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറുമായും അദ്ദേഹം ചർച്ച നടത്തും ഇന്ന് ആരംഭിക്കുന്ന റെയ്സിന സംഭാഷണത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ബംഗളുരുവും സന്ദൂർശിക്കും

ജെ

അതോടൊപ്പം സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട് കടകളുടേയും ഹോട്ടലുകളുടേയും പ്രവർത്തന സമയം രാത്രി ഒൻപത് വരെയ്കാക്കി

വൻ വിപണന്റിമ്മേളകൾ നിരോധിക്കാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടൂണ്ട്

റെഡ്നി ലാബാണ് രാജ്യത്ത് നടത്തിയത്

ടി

സി ആർ

കുംഭമേളയോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശമുള്ളത്

മഹാരാഷ്ട്ര കർണാടക ഛത്തീസ്ഗഡ് ഡൽഹി തമിഴ്നാട് ഉത്തർപ്രദേശ് പഞ്ചാബ് മധ്യപ്രദേശ് ഗുജറാത്ത് കേരളം എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്

ആർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോവിഡ് വൃാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം ഈ തീരുമാനം ക്ക്കൊണ്ടത്

ഐ ആവശ്യപ്പെട്ടു

സംഭവത്തിൽ ബോംബെ ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു തുടർന്ന് ഏപ്രിൽ അഞ്ചിന് ദേശ്മുഖ് ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവച്ചു ഇന്നലെ സി ബി ഐ ദേശ്മുഖിന്റെ രണ്ട് പി എ മാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു

നിലവിലെ കമ്മീഷണർ സുനിൽ അറോറ ഇന്ന് സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയ മുതിർന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ സുശീൽ ചന്ദ്രയെ ഈ സ്ഥാനത്ത് നിയമിച്ചത്

രക്തസാക്ഷികളുടെ ധൈര്യവും മനോബലവും പരിത്യാഗവും ഓരോ ഇന്ത്യക്കാരനും ശക്തിപകരുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് മീഴ്സപിറവി കണ്ടതിനെ തുടർന്നാണ് വ്രതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമായത്

എന്നാൽ രാജ്യത്ത് വിവിധയിടങ്ങളിൽ നാളെ ്ൃ മുതുലാണ് വ്രതാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമാവുക

ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിൽ ഉഗാദി എന്നും കർണാടകയിൽ യുഗാതി എന്നും മഹാരാഷ്ട്രയിൽ ഗുഡി പട്പ എന്നും തമിഴ്നാട്ടിൽ പുത്താണ്ട് എന്നും കേരളത്തിൽ വിഷു എന്ന പേരിലുമാണ് പുതുവർഷം ആഘോഷിക്കുന്നത്

വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ രാജ്യത്തെ ജനങ്ങൾക്ക് പുതുവത്സരാംശംസകൾ നേർന്നു

എല്ലിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും

ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്ങ്സ് രാജസ്ഥാൻ റോയൽസിനെ നാല് റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു

നവംബർ ഡിസംബർ മാസ ങ്ങളിലാണ് മത്സരങ്ങൾ